പ്രഥമ പരിഗണനയെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി

ഗവർണർക്കെതിരെയുള്ള നിലപാടിൽ ഉറച്ചുനിൽക്കുന്നതായി പ്പ്പത്തി പക്ഷ നേതാവ്

പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി ജി സുധാകരൻ

നിർഭയ കേസിലെ പ്രതികളിലൊരാളായ മുകേഷ് സിംഗ് നൽകിയ ഹർജി സുപ്രീംകോടതി തളളി

അൽപസമയത്തിനകം ഹാമിൽറ്റണിൽ ടോസ് നേടിയ ന്യൂസിലന്റ് ബൌളിംഗ് തിരഞ്ഞെടുത്തു

പതിനാലാം കേരള നിയമസഭയുടെ പതിനെട്ടാം സമ്മേളനത്തിനു തുടക്കം കുറിച്ചുകൊണ്ടു നടത്തിയ രണ്ടു മണിക്കൂർ നീണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഭവന പദ്ധതിയിൽ രണ്ടു ലക്ഷം പേർ പുതിയ ഗുണഭോക്താക്കളാവും കൃഷി വ്യവസായ ആരോഗ്യം ഗതാഗതം എന്നീ മേഖലകളിൽ സമഗ്ര വികസന പരിപാടികളാണ് തന്റെ ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നതെന്നും ഗവർണർ വ്യക്തമാക്കി

തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിളയിനങ്ങൾ പരിരക്ഷിക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും എല്ലാ കൃഷിഭവനങ്ങളിലും പൊതുജന സൌകര്യാർത്ഥം ഫ്രണ്ട് ഓഫീസൂകൾ തുടങ്ങുമെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു

എസ് ആർ ടി

സംസ്ഥാനത്ത് ഫിലമെന്റ് ബൾബുകളും സി

മുഖ്യമന്ത്രിയോടുള്ള ബഹുമാനം കണക്കിലെടുത്തും അഭ്യർത്ഥന മാനിച്ചുമാണ് ഈ ഭാഗം വായിക്കുന്നതെന്ന് വ്യക്തമാക്കിയായിരുന്നു ഗവർണറുടെ നടപടി ഇത് ഗവൺമെന്റിന്റെ നയമല്ല കാഴ്ചപ്പാടാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

രാവിലെ സഭ സമ്മേളിച്ചപ്പോൾ നയപ്രഖ്യാപനം നടത്താനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ പ്പക്കാർഡും ബാനറുകളുമായി പ്രതിഷേധിച്ചു ഗവർണറെ ഡയസിലേക്ക് സ്വീകരിച്ചിരുത്താൻ വാച്ച് ആന്റ് വാർഡിന്റെ സഹായം വേണ്ടി വന്നു വാച്ച് ആന്റ് വാർഡ് പ്രതിരോധ വലയം തീർത്തതോടെയാണ് ഗവർണർ തന്റെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയത് ആമുഖമായി മലയാളത്തിൽ സംസാരിച്ച ഗവർണർ പിന്നീട് ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചത് ഗവർണർ പ്രസംഗിക്കുന്നതിനിടെ പ്രതിഷേധ പരാമർശവുമായി പ്രതിപക്ഷ നേതാവ്ട് രമേശ് ചെന്നിത്തല ഇടപ്പെട്ടതോടെ സഭാതലം വീണ്ടും പ്രിബ്ദ്മുഖരിതമായി തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം ഗൃഷ്ട്ണ്ർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി സഭ ബഹിഷ്ക്ക്രിച്ചു നേരത്തെ നിയമസഭ സമുച്ചയത്തിലെത്തിയ ഗവർണ്ണർആരിഫ് മുഹമ്മദ് ഖാനെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ക്മൂഖൃമന്ത്രി പിണറായി വിജയൻ പാർലമെന്റ് കാര്യ മന്ത്രി എ

ബ്ാലൻ തുടങ്ങിയവർ ചേർന്ന് ഔപചാരിക വരവേൽപ്പ് നൽകി

പ്രതിപക്ഷം പോരാട്ടം തുടരുമെന്നും സഭ ബഹിഷ്കരിച്ചശേഷം പ്രതിപക്ഷ നേതാവ് നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

രാഷ്ട്രപതിയുടെ തീരുമാനത്തിൽ ഇടപെടാനാകില്ലെന്നാണ് കോടതിയുടെ നിലപാട്

കൂടംകുളം ലൈൻ യാഥാർഥ്യമായതോടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രസരണ നഷ്ടം കൂടാതെ വൈദ്യുതി വാങ്ങിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു